ആഗോളതലങ്ങളിലെ സഹകരണത്തിന്റെ പ്രാധാനൃം ലോകം മനസ്സിലാക്കിയാതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഇന്ത്യയ്ക്ക് സാധിക്കൺമെന്ന് നീതി ആയോഗ് സി ഇ

റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്

ഇന്ന്സ്വീഡിഷ് പ്രധാനമന്ത്രി സ്റ്റെഫാൻ ലോഫ്വെന്റുമായി നടത്തിയ വെർച്ചൽ ഉച്ചകോടിയിലാണ് ശ്രീ മോദി ഇക്കാരും വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി അമൃത

പാരീസ് ഉടമ്പടിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ രാജ്യം പ്രതിജ്ഞാബദ്ധതയോടെ മുന്നേറുകയാണെന്ന് അദ്ദേഹം വൃക്തമാക്കി

നവീകരണം സാങ്കേതികവിദ്യ നിക്ഷേപം പുതു സംരംഭങ്ങൾ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ സ്വീഡൻ ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വൃക്തമാക്കി സ്മാർട്ട് സിറ്റികൾ ജല ശുദ്ധീകരണം മാലിനൃ നിർമാർജനം സമ്പദ്വൃവസ്ഥ സ്മാർട്ട് ഗ്രിഡുകൾ ഇ മൊബിലിറ്റി ഡിജിറ്റൈസേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ ഇരു രാജൃങ്ങളും പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കും

സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അടുത്ത ആഴ്ചയോടെ അന്തിമരൂപം നൽകാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനങ്ങൾക്കായി സിപിഎം സംസ്ഥാന സമിതി യോഗം ഇന്ന് എകെജി സെന്ററിൽ ചേർന്നു ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച സ്ഥാനാർത്ഥി പട്ടിക യോഗം ചർച്ച ചെയ്തു

ഈ മാസം എട്ടിന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥാനാർഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും

എൻഡിഎയിൽ ബിജെപിയുടേയും ബി

എസിന്റേയും സ്ഥാനാർഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലെത്തി

റിട്ടേണിംഗ് ഓഫീസർമാർക്കായി സംഘടിപ്പിച്ച പരിശീലനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭയരഹിതമായി ജോലി ചെയ്യുന്നതിന് എല്ലാവിധ പിന്തുണയും ഉറപ്പുനൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഉയർന്നുവരുന്ന സൈനിക ഭീഷണികൾ ഇൌ ഭീഷണികൾ നേരിടുന്നതിന് സായുധ സേനകളുടെ നിർണായക പങ്ക് ഭാവിയിൽ യുദ്ധരംഗത്ത് ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു രാജ്യരക്ഷാ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് നടന്ന രണ്ട് യോഗങ്ങളിൽ ആധുനിക സാർങ്കേതികവിദൃ ഉൾച്ചേർക്കൽ സംയോജിത തിയേറ്റർ കമാൻഡ് രൂപീകരണം തുടങ്ങി സായുധ സേനയുടെ പുരോഗമിച്ചുക്കാണ്ടിരിക്കുന്ന ആധുനികവൽക്കരണ നടപടികളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു നാളെ നടക്കുന്ന സ്മാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുക്കും

ദേശീയ വനിതാകമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്

കോവിഡ് വ്യാപനം തടയാനും പ്താറ്റ്ഫോമിൽ ജനക്കൂട്ടം ഒഴിവാക്കാനുമാണ് ടിക്കറ്റ് നിരക്കിൽ വർദ്ധനവ് ഏർപ്പെടുത്തിയത് രോഗവ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ നിരക്കും കുറയ്ക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

ഏപ്രിൽ ഒന്നിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്

ഉത്പാദന രംഗത്ത് മേൽക്കൈ നേടാൻ പ്രധാനമന്ത്രിയുടെ ഉത്പാദന ബന്ധിത ആനുകൂലൃ പദ്ധതി പ്രയോജനപ്പെടുത്താൻ നിർമ്മാണ മേഖലയിലെ ഓരോ ഉത്പാദകനും തയ്യാറാകണം

എൽ

ഒറ്റപ്പെടലും ഭാവിയെ കുറിച്ചുള്ള ആശങ്കളും ഇവരെ ബാധിച്ചതായി യുനിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു

ഇന്ദിരാഗാന്ധി സാംസ്കിരക കേന്ദ്രത്തിന് ശേഷമുള്ള രണ്ടാമത്തെ കേന്ദ്രമാണ് വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്

സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർധിച്ചു വരുന്നതിൻറെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദൂരന്ത നിവാരണ അതോറിറ്റി നിർദേശിച്ചു

സെഞ്ചുറി നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിന്റെ പ്രകടനമികവിലാണ് ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ ലീഡ് സ്വന്തമാക്കിയത്